സ്വയംപര്യാപ്തമാക്കുന്നതിനുള്ള സുപ്രധാന നടപടി സ്വീകരിച്ചതായി കൽക്കരി ഖനികളുടെ ലേലത്തിന് തുടക്കമിട്ടു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അംഗത്വം നേടി ലോകരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി

ചികിത്സയിലായിരുന്ന എക്സൈസ് ജീവനക്കാരൻ മരണമടഞ്ഞു

കോച്ചുകൾ വിന്യസിച്ച് ഇന്ത്യൻ റെയിൽവേ

ഊർജ്ജ രംഗത്ത് ഇന്ത്യയെ സ്വയംപര്യാപ്തമാക്കാനുള്ള സുപ്രധാന നടപടിയാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശതാബ്ദങ്ങൾ നീണ്ട അടച്ചിടലിനു ശേഷം കൽക്കരി മേഖലയെ പുറത്തേക്ക് എത്തിക്കുന്ന നടപടിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൽക്കരി നിക്ഷേപത്തിൽ ലോകത്ത് നാലാം സ്ഥാനത്തു നിൽക്കുന്ന ഇന്ത്യ കൽക്കരി ഉത്പാദനത്തിലും ഇറക്കുമതിയ്ടിലും രണ്ടാമതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഏഷ്യ പസഫിക് വിഭാഗത്തിലാണ് ഇന്തൃ തിരഞ്ഞെടുക്കപ്പെട്ടത്

ഇത് എട്ടാം തവണയാണ് ഇന്ത്യയ്ക്ക് രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നത്

എൻ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും സമത്വത്തിനുമായി മറ്റ് അംഗരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ട്ടിറ്ററിലൂടെ അറിയിച്ചു

രക്ഷാസമിതി അംഗമാകുന്നതിന് ഇന്ത്യയെ പിന്തുണച്ച എല്ലാ അംഗരാജ്യങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും നന്ദി രേഖപ്പെടുത്തി

അന്താരാഷ്ട്ര തലത്തിലെ സമീഹ്യാനത്തിനും ് സുരക്ഷയ്ക്കുമായി ഇന്ത്യയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായും അമേരിക്ക വ്യക്തമാക്കി

രാജൃത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും അയൽ രാജ്യങ്ങളുമായി സമവായമുണ്ടാക്കാനാണ് ഇന്ത്യ എന്നും ആഗ്രഹിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രകോപിക്കപ്പെട്ടാൽ ഉചിതമായ മറുപടി കൊടുക്കാൻ ഇന്തൃക്ക് ശേഷിയുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു

രാജ്യത്തിന്റെ അഖണ്ഡതയും അഭിമാനവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ ധൈര്യത്തിന് മുന്നിൽ നമിക്കുന്നതായി രാഷ്ട്രപതി അറിയിച്ചു സൈനികരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

പട്ന സ്വദേശി ഹവീൽദാർ സുനിൽ കുമാപ്പിള്ന്റ് സംസ്കാരം ഇന്നലെ ഔദ്യോഗിക ബഹുമതികളോടെ പൂർത്തിയായിരുന്നു

ആറ് സംസ്ഥാനങ്ങളിലാണ് പദ്ധതിയുടെ ആദൃ ഘട്ടം നടക്കിലാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ

ബിഹാറിലെ തെലിഹാറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നിർവ്വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അമ്പതിനായിരം കടന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

മൂന്ന് ദിവസം മുമ്പാണ് മട്ടന്നൂർ എക്സൈസ് ഓഫീസിലെ ജീവനക്കാരനായ സുനിൽ കുമാറിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ മുതൽ സുനിൽ കുമാറിന്റെ ആരോഗ്യനില അതീവഗുരുതരമായി തുടരുകയായിരുന്നു ഇദ്ദേഹത്തിന് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മട്ടന്നൂർ എക്സൈസ് ഓഫീസ് അടയ്ക്കുകയും ചെയ്തിരുന്നു

ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധയിൽ അമേരിക്കയ്ക്ക് പിന്നിൽ ബ്രസീലിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ കേസുകൾ പുതിയതായി റിപ്പോർട്ട് ചെയ്തത്